ദന്തൽ ലാബ് മന്ത്രി കെ

ശ്ശ്ലജ നാടിന് സമർപ്പിച്ചു

സെക്രട്ടേറിയേറ്റ് കെട്ടിടത്തിൽ തീ പിടുത്തം

സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ചീഫ് സെക്രട്ടറി

പാലക്കാട്ട് ജില്ലയിലെ പട്ടയ വിതരണമേള അടുത്ത മാസം ഏഴിന്

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡ്ഡിയ്ത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത്ത് കൂടുതൽ വിവരങ്ങ്ളുമായി രഞ്ജിത്

ഇവർ ജില്ലയിലെ വിവിധ കോവിഡ് ആശുപത്രികളിലും പ്രാഥമിക തല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലും സേവനമനുഷ്ഠിക്കും

പ്രാഥമിക തല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ആവശ്യമായ ഡോക്ടർമാർ നഴ് സുമാർ ഫാർമസിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ മറ്റ് ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ

സർക്കാർ ഡെന്റൽ കോളേജിന്റെ ഭാഗമായി പുലയനാർകോട്ട ടി ബി

ദന്തൽ ചികിത്സാ രംഗത്തെ പുതിയ കാൽവയ്പ്പാണ് ദന്തൽ ലാബെന്ന് മന്ത്രി പറഞ്ഞു

വിമാനത്താവളം സ്വകാര്യവത്കരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തേ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ വിധി വരും വരെ കേന്ദ്ര നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഇടക്കാല ഉത്തരവ് നൽകാനാവില്ലെന്ന് ഹർജി പരിഗണിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിക്കുകയായിരുന്നു

ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കി കേസ് സിബിഐക്ക് വിട്ട സിംഗിൾ ബഞ്ച് നടപടി ചോദ്യം ചെയ്താണ് സർക്കാർ ഡിവിഷൻ ബഞ്ചിനെ സമീപിച്ചത്

പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന് തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനനും പറഞ്ഞു

അതിനിടെ പ്രതിക്ഷേധവുമായി ബിജെപിയും പ്രതിപക്ഷ നേതാക്കളും സ്ഥലത്തെത്തിയത് സംഘർഷത്തിനിടയാക്കി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘർഷം ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി അഭ്യർത്ഥിച്ചു

സുധാകരൻ ധർമ്മടം മണ്ഡലത്തിലെ കോളാട് പറ്റ്ലൂ് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു

വിവിധ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയ ്മറ്റ് ്പദ്ധതികളുടെ ഉദ്ഘാടനം കോവിഡ് മാനദണ്ഡങ്ങൾ പ്പാ്ലിച്ച് ഓൺലൈനായാണ് സംഘടിപ്പി ക്കുന്നതെന്ന് മന്ത്രി ജി

സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ എൻ

ജയചന്ദ്രൻ

മൂന്ത്രിമാരായ എ

ഡി

ജില്ലയിലെ ആറ് താലൂക്കുകളും താലൂക്കുകൾക്കു കീഴിലെ വില്ലേജോഫീസുകളും മുഖേനയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്യുക

നിയമസഭ സമുച്ചയം സമ്പൂർണ്ണമായും സോളാർവൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാക്കി മാറ്റുന്നതിന്റെ തുടക്കം കൂടിയായിരിക്കും ഈ പദ്ധതിയെന്ന് സ്പീക്കർ പറഞ്ഞു ഹൃക്ക്കുകൾക്കുകൾക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അൻപത് സെന്റ് സ്ഥലത്ത് വിശാലമായ പാർക്കിംഗ് സൌകര്യവും മാലിനൃ സംസ്കരണ പ്ലാന്റുമായി ഒന്നര കോടി മുടക്കി നഗരസഭ നിർമ്മിച്ച വള്ളക്കടവ് മാർക്കറ്റ് പൂർണമായി ഉപയോഗിക്കാതെ വഴിയരികിൽ മത്സ്യ കച്ചവടവും മാംസക്കച്ചവടവും നടത്തുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിക്കാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർദ്ദേശം നിൽകിയത് നാലാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം

സംഭവത്തെക്കുറിച്ച് പരാതി നൽകി നാലു മാസമായിട്ടും പൊലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപത്തെത്തുടർന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൊലീസ് കേസെടുത്തത്

രാമകൃഷ്ണൻ ഇൻട്രോ സാങ്കേതിക പരിജ്ഞാനവും നൈപുണ്യശേഷിയും ഉറപ്പാക്കി സംസ്ഥാനത്തെ ഐടിഐകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് മന്ത്രി ടി

തിരുവനന്തപുരത്തെ അന്താരാഷ്ട്രാ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നിർമാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി മന്ത്രി നിർവ്വഹിച്ചു

ചാക്ക കോഴിക്കോട് ഐടിഐകൾ സർക്കാർ പദ്ധതി വിഹിതം ഉപയോഗിച്ചും ധനുവച്ചപുരം മലമ്പുഴ കൊയിലാണ്ടി കൊല്ലം ചന്ദനത്തോപ്പ് ചെങ്ങന്നൂർ ഏറ്റുമാന്നൂർ കട്ടപ്പന ചാലക്കുടി കണ്ണൂർ കയ്യൂർ എന്നീ പത്ത് ഐടിഐകൾ കിഫ്ബി ധനസഹായത്തോടെയും അന്താരാഷ്ട്രനിലവാരത്തിലേക്ക് ഉയർത്തും

് വികസിത ് രാജ്യങ്ങളിലെ തൊഴിൽ നൈപുണ്യ പരിശീലനസ്ഥാപനങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഐടിഐകളിലെ അടിസ്ഥാനസൌകര്യങ്ങളും പരിശീലന നിലവാരവും ഉയർത്തുകയെിന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി

കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമയം ദീർഘിപ്പിക്കുന്നത് ജനത്തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കത്തിൽ പറയുന്നു

കൊവിഡ് പരിശോധന നടത്തി പോലീസ് നൽകുന്ന തിരിച്ചറിയൽ കാർഡുള്ള വ്യാപാരികൾക്ക് മാത്രമേ കടകൾ തുറക്കാൻ അനുവാദമുള്ളൂ

സമൂഹസദ്യ പൂക്കളമത്സര്ക് മറ്റ് പൊതുപരിപാടികൾ എന്നിവ ജില്ലയിൽ നിരോധിച്ചു

പ്രവേശന കവാടത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ആളുകളുടെ പ്രവേശനം നിയന്ത്രിക്കും

ആലപ്പുഴ ജില്ലാ കളക്ടർ വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതരുമായി നടത്തിയ കോവിഡ് കോവിഡിതര രോഗചികിത്സാ അവലോകനത്തിലായിരുന്നു തീരുമാനം കോവിഡ് ചികിത്സ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കോവിഡിതര രോഗ ചികിത്സയും മെഡിക്കൽ കോളേജിൽ ശക്തിപ്പെടുത്തും

കൃഷ്ണമാക്കും കൃഷ്ണമെന്ന് കൃഷ് ചിന്നക്കനാൽ ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസ് അക്രമിച്ച് ജീവനക്കാരെ പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയിൽ സ്വകാര്യ കരാറുകാരൻ ഉൾപ്പെടെ നാല് പേരെ ശാന്തൻപാറ പൊലീസ് കസ്റ്റഡിയിലെടുത്തു സൂര്യനെല്ലി സ്വദേശികളായ കെട്ടിട നിർമ്മാണ കരാറുകാരൻ ഗോപി ഇയാളുടെ മാനേജർ ആന്റണി രാജ ജീവനക്കാരായ മുത്തുകുമാർ വിജയ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്

അംബേദ്കർ കോളനി പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസിയായി നിർമ്മിതി കേന്ദ്രത്തെ നിശ്ചയിക്കാൻ ധാരണയായി

അർഹതപ്പെട്ട മുഴുവൻ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗക്കാർക്കും ലൈഫ് പദ്ധതിയിലുൾപ്പെടുത്തി വീടുകൾ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും

കോവിഡ് പശ്ചാത്തുല്പ്ത്തീൽ ഉയർന്നുവന്ന സാമ്പ ത്തിക പ്രതിസന്ധി ചിട്ടി ബിസ്സിനസിറ്റ് പ്ര്യ്തികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയ്യെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു ക്ക് കൃഷ്ടക്ക് കൃഷ്ട വെബിനാർ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളാ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വ്യവസായം എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന വെബിനാർ വ്യാഴാഴ്ച് ഉച്ചയ്ക്ക് നടക്കും ധനമന്ത്രി തോമസ് ഐസക്ക് ഉദ്ഘാടനം ചെയ്യും